പി ലോക്നാഥ് ബൈഹ്റ

വാർത്തകൾ വിശദമായി കേന്ദ്രധനമന്ത്രി നിർമല സീതാരാമൻ പ്രഖ്യാപിച്ച സാമ്പത്തിക പാക്കേജ് ബിസിനസുകാർ പ്രത്യേകിച്ച് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ദീർഘകാലത്തേക്ക് പരിഹരിക്കാൻ പര്യാപ്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു പണലഭ്യത നടപടി മെച്ചപ്പെടുത്തുമെന്ന് അദ്ദേഹം ട്വിറ്ററിൽ പറഞ്ഞു സംരംഭകരെ ശാക്തീകരിക്കുമെന്നും അവരുടെ മത്സര സ്വഭാവത്തെ ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു രുമ ധനമന്ത്രി പ്രഖ്യാപിച്ച സാമ്പത്തിക പാക്കേജ് ലക്ഷക്കണക്കായ പാവപ്പെട്ടവർക്കും പട്ടിണിയിലായ കുടിയേറ്റ തൊഴിലാളികൾക്കും ഒന്നും നൽകുന്നില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ധനമന്ത്രിയുമായ പി ചിദംബരം പറഞ്ഞു ചെറുകി ഇടത്തരം സൂക്ഷ്മ സംരംഭങ്ങൾക്ക് പ്രഖ്യാപിച്ച പാക്കേജ് ഒഴികെ മറ്റെല്ലാം നിരാശപ്പെടുത്തുന്നതാണെന്ന് വീഡിയോ കോൺഫറൻസിങ് വഴി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചിദംബരം കുറ്റപ്പെടുത്തി കേന്ദ്ര ഗവൺമെന്റ് കൂടുതൽ കടം വാങ്ങണമെന്നും സംസ്ഥാന ഗവൺമെന്റുകളെ കൂടുതൽ കടം വാങ്ങാനും ചെലവഴിക്കാനും അനുവദിക്കണമെന്നും എന്നാൽ അത്തരം കാര്യങ്ങൾ പാക്കേജിൽ ഇല്ലെന്നും ചിദംബരം പറഞ്ഞു

കുടിയേറ്റ തൊഴിലാളികളുടെ പരിചരണത്തിനാണ് ആയിരം കോടി രൂപ അനുവദിച്ചത്

ഇതിൽ കോവിഡ് ലക്ഷണങ്ങൾ കണ്ടെത്തിയ ആറ് പേരെ മഞ്ചേരി കോഴിക്കോട് മെഡിക്കൽ കോളജുകളിലേക്ക് മാറ്റി മറ്റ് ആരോഗ്യപ്രശ്നങ്ങൾ കണ്ടെത്തിയ ഗർഭിണിയടക്കം ഒൻപത് പേരെ മഞ്ചേരി കോഴിക്കോട് തൃശൂർ മെഡിക്കൽ കോളജുകളിലേക്ക് കൊണ്ടുപോയി

ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം ആറുപേരെ മഞ്ചേരി കോഴിക്കോട് മെഡിക്കൽ കോളജുകളിലേക്ക് മാറ്റി ഇതിൽ ഒരു വനിതയ്ക്ക് മാത്രമാണ് കോവിഡ് ലക്ഷണങ്ങൾ കണ്ടെത്തിയത്

ഗൾഫിൽ നിന്നും വന്ന നാല് പേർക്കും ചെന്നൈയിൽ നിന്ന് വന്ന രണ്ട് പേർക്കും സമ്പർക്കത്തിലൂടെ നാല് പേർക്കുമാണ് രോഗബാധ ഇതിൽ രണ്ട് പേർ പൊലീസുകാരാണ്

മലപ്പുറത്ത് മൂന്നും വയനാട് പാലക്കാട് ജില്ലകളിൽ രണ്ട് വീതവും കോട്ടയം കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ ഒന്ന് വീതവുമാണ് രോഗബാധിതർ

ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് മാനന്തവാടി സ്റ്റേഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന രണ്ട് പോലീസുകാർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്

രുമ മാനന്തവാടി പൊലീസ് സ്റ്റേഷനിലെ രണ്ട് പൊലീസുകാർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ നിലവിൽ സ്റ്റേഷനിലെ മുഴുവൻ പൊലീസുകാരും ക്വാറന്റൈനിലായി

ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ പൊലീസ് സ്റ്റേഷൻ അണുവിമുക്തമാക്കിയ ശേഷം വെള്ളമുണ്ട തലപ്പുഴ തിരുനെല്ലി പൊലീസ് സ്റ്റേഷനുകളിലെ പൊലീസുദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി മാനന്തവാടി സ്റ്റേഷൻ പ്രവർത്തനം പുനഃരാരംഭിക്കുമെന്ന് എസ് പി ആർ ഇളങ്കോ അറിയിച്ചു രുമ കണ്ണൂർ ജില്ലയിൽ പത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ ഒരു കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തത് വയനാട്ടിൽ ജോലി ചെയ്യുന്ന കേളകം സ്വദേശിയായ പോലീസുകാരനാണ് കൊറോണ പരിശോധന ഫലം പോസിറ്റീവ് ആയത്

നാലുപേരാണ് ചികിത്സയിലുള്ളത്

രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ഇദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു

രുമ കൊല്ലം ജില്ലയിൽ ഒരാൾക്ക്കൂടി കോവിഡ് ഭേദമായി

ഇതോടെ കുവൈറ്റിൽ മരിച്ച മലയാളികളുടെ എണ്ണം എട്ട് ആയി

പുതിയ കൊറോണ വൈറസ് ഒരു കാലത്തും പോകാൻ സാധ്യതയില്ലെന്നും അദ്ദേഹം ജനീവയിൽ പറഞ്ഞു

കോവിഡ് അനന്തര കേരളത്തിന്റെ തൊഴിൽ നൈപുണ്യ വികസന സാധ്യതകൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച വെബിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നിർമാണ മേഖലയിൽ അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാകുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ദേദ ഇടുക്കി ജില്ലയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കുന്ന കുമളി കമ്പംമെട്ട് ബോഡിമെട്ട് മറയൂർ അതിർത്തി ചെക്പോസ്റ്റുകളിൽ തമിഴ്നാട് കേരള പൊലീസിന്റെയുൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളുടെ സംയുക്ത പരിശോധനയാണ് നടക്കുന്നത്

ബോഡിമെട്ട് ചെക്ക് പോസ്റ്റിൽ പച്ചക്കറി പലചരക്ക് വണ്ടികൾക്കു മാത്രമാണ് യാത്രാനുമതി രുര സോഫ്റ്റ് വെയറിലെ തകരാർ കാരണം ഗുണഭോക്തൃ ലിസ്റ്റിൽ അപാകം കണ്ടെത്തിയതിനാൽ ബിപിഎൽ അന്ത്യോദയ കാർഡ് ഉടമകൾക്ക് ആയിരം രൂപ വിതരണം ചെയ്യുന്ന പദ്ധതി നിർത്തി വെച്ചതായി സംസ്ഥാന ധനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു

റേഷൻ കടകൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും നേരത്തെ അയച്ച പട്ടിക റദ്ദാക്കി ഗുണഭോക്താക്കളുടെ പുതിയ ലിസ്റ്റ് അടുത്താഴ്ച പ്രസിദ്ധീകരിക്കും

രുമ മേയ് മാസത്തെ റേഷൻ ഇപോസ് മെഷീനിൽ വിരൽ പതിച്ച് ബയോമെട്രിക് സംവിധാനം മുഖേനയായിരിക്കും വിതരണം ചെയ്യുകയെന്ന് അധികൃതർ അറിയിച്ചു